സംസ്ഥാനത്ത് മഴയുടെ ശക്തി കുറയുന്നു അഞ്ച് ജില്ലകളിലെ ഓറഞ്ച് അലെർട്ട് പിൻവലിച്ചു

ശബരിമലയിൽ സ്ത്രീ പ്രവേശനൃപ്സംബന്ധിച്ച വിധിയിൽപ്രതിഷേ ധിച്ച് നില്യ്ക്ക് ലിൽപർണ ശാല കെട്ടി രാപ്പകൽ സമര്യം തുടങ്ങി

ബസ് ചാർജ് വർധന ഇപ്പോൾ നടത്താനാവി ല്ലെന്ന് ഗതാഗതമന്ത്രി ്ഫ്സ് കെ ശശീന്ദ്രൻ

ഗോൾഡൻ ഗ്ലോബ് പര്യടനത്തിൽ പരിക്കേറ്റ മല യാളി നാവികൻ അഭിലാഷ് ടോമിയെ ഡൽഹിയി ലെ സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു

എൽ ഫൂട്ബോളിൽ ഇന്ന് ബംഗ്ളൂരു ജംഷഡ്പൂർ പോരാട്ടം ടട മഴ ചുഴലിക്കാറ്റ് സാധ്യതയെ തുടർന്ന് സംസ്ഥാനത്തെ അഞ്ച് ജില്ലകളിൽ പ്രഖ്യാപിച്ചിരുന്ന അതീവ ജാഗ്രതാ നിർദ്ദേശം ഓറഞ്ച് അലർട്ട് പിൻവലിച്ചു

കേരളത്തിൽ പൊതുവെ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്

അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദ്ദേശത്ത് മഴ പെയ്യാതിരുന്നതിനാൽ നീരൊഴുക്കു ദുർബലമായിരുന്നു്

സുപ്രീംകോടതി വിധിക്കെതിരെ പുനപരിശോധന ഹർജി നൽകുന്ന കാര്യത്തിൽ തീരുമാനം എടുത്തസേഷം ചർച്ച മതിയെന്നാണ് താഴമൺ കുടുംബത്തിന്റെ നിലപാട് അതേസമയം വിഷയത്തിൽ ഇനി തന്ത്രികുടുംബം ആവശ്യപ്പെട്ടാൽ മാത്രം ചർച്ചമതിയെന്ന് മുഖ്യമ്ത്രി പിണറായി വിജയൻ ന്യൂഡൽഹിയിൽ വ്യക്തമാക്കി

വാസു ശബരിമലയിൽ സ്ത്രീക്കൾക്കുവേണ്ടി പ്രത്യേക സൌകര്യങ്ങൾ ഒരുക്കുമെന്ന് ദേവസ്വം കമ്മീഷണർ എൻ

പമ്പയിലും നിലയ്ക്കലിലും ഇപ്പോഴുള്ള ശൌചാലയങ്ങളിൽ ഒരു വിഭാഗം സ്ത്രീകൾക്കായി മാറ്റിവയ്ക്കും സന്നിധാനത്ത് വനിതാ ജീവനക്കാരെ നിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല ഇതു സംബന്ധിച്ച് പോലീസ് മേധാവിയുമായി നാളെ ചർച്ച നടത്തുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു

അന്താരാഷ്ട്ര വിപണിയിൽ എം

എ എന്ന ചുരുക്കപ്പേരിലറിയപ്പെടുന്ന മെത്തലീൻ ഡയോക്സി മെത്താംഫീറ്റമിൻ മയക്കുമരുന്നാണ് കഴിഞ്ഞയാഴ്ച എന്ന പിടികൂടിയത്

ജനങ്ങൾക്കുമേൽ അധികഭാരം അടിച്ചേൽപ്പിക്കാൻ ഗവൺമെന്റ് തയ്യാറാല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി ടട അഭിലാഷ് ടോമി ഗോൾഡൻ ഗ്ലോബ് പര്യടനത്തിനിടെ പായ്വഞ്ചി തകർന്നു പരിക്കേറ്റ മലയാളി നാവികൻ അഭിലാഷ് ടോമിയെ ഡൽഹിയിലെ സൈനിക ആശുപത്രിയിലേക്ക് മാറ്റി

ഡൽഹിയിലെ ആശുപത്രിയിൽ നടത്തുന്ന പരിശോധനക ളിൽ അഭിലാഷിന്റെ ആരോഗ്യനില വിശദമായി വിലയിരുത്തും

ആംസ്റ്റർഡാം ദ്വീപിൽ ചികിത്സയിലായിരുന്ന അഭിലാഷ് ടോമിയെ നാവിക കപ്പലായ സത്പു രയിൽ ഇന്നലെയാണ് വിശാഖപട്ടണത്ത് എത്തിച്ചത്

ആരോഗ്യ വകുപ്പ് നാഷണൽ ഹെൽത്ത് മിഷൻ എന്നിവ സംയുക്തമായാണ് ദൌത്യരേഖ തയ്യാറാക്കിയത്

ശൈലജവോയിസ് ജനപ്രതിനിധികൾക്കും പ്ര ആരോഗ്യ പ്രവർത്തകർക്കും പൊതുജനങ്ങൾക്കും ആർദ്രത്തെപ്പറ്റി വ്യക്തമായ ധാരണ ഉണ്ടാക്കുന്ന വിധത്തിലാണ് ദൌത്യരേഖ രൂപകൽപന ചെയ്തിരിക്കുന്നത് ആർദ്രം മിഷൻ സാധാരണക്കാരിൽ എത്തിക്കുന്നതിന്റെ ഭാഗമായി തയ്യാറാക്കിയ ഇൻഫോഗ്രാഫിക് ആൽബവും ഇതോടൊപ്പം ചെയ്തു പ്രകാശനം ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ തുടങ്ങിയവ അവലംബിച്ചുള്ള നൂതന അവതരണ രീതിയിലാണ് ഈ ആൽബം നിർമ്മിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ആരോഗ്യ സംവിധാനം ഇന്ത്യയിൽ തന്നെ ശ്രദ്ധേയമാണെന്നും ഈ സംവിധാനം അതുപോലെ നിലനിർത്തേണ്ടതുണ്ടെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു ഭൌതിക സാഹചര്യം വിപുലീകരിക്കുക ജീവനക്കാരുടെ നൈപുണ്യം വികസിപ്പിക്കുക ജനസൌഹൃദ സേവനങ്ങൾ ഒരുക്കുക താങ്ങാവുന്ന ചികിത്സാ ചെലവ് ലഭ്യമാക്കുക ഗുണമേന്മയുള്ള മരുന്നുകളുടെ ലഭ്യത തുടങ്ങിയവയിലൂടെ ആരോഗ്യ മേഖലയിൽ പ്രകടമായ മാറ്റം വരുത്തുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി പറഞ്ഞു

എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗ്ളൂരു ജംഷഡ്പൂർ പോരാട്ടം ജംഷഡ്പൂർ എഫ് സി താരമായ ടിംകാഹിൽ ഇന്ന് ബംഗ്ളൂരുവിനെതിരെയുളള മത്സരത്തിൽ ബൂട്ടണിയും നിലവിലെ ജേതാക്കളായ ചെന്നൈയ്ക്കെതിരെ വിജയിച്ചതിന്റെ ആവേശത്തി ലാണ് ബംഗ്ളൂരു മുംബൈയ്ക്കെതിരെയുള്ള ആദ്യ കളിയിൽ ആധി കാരിക വിജയം നേടാനായത് ജംഷ്ട്രിഡ്പൂരിന്റെ ആത്മവിശ്വാസം വർധിപ്പിക്കുന്നു

വണ്ടാനം മെഡിക്കൽ കോളജ് അങ്കണത്തിൽ നിർമ്മിച്ചു എയ്റോബിക് കമ്പോസ്റ്റ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം

ഉറവിട മാലിന്യ സംസ് കരണ സമ്പ്രദായമാണ് ഇതിനായി അവലംബിച്ചിരിക്കുന്നത് ടടട നവരാത്രി നവരാത്രിപൂജകൾക്ക് മുന്നോടിയായി നവരാത്രിവിഗ്രഹങ്ങളുടെ എഴുന്നള്ളത്തിന് തുടക്കമായി ഇന്ന് പത്മനാഭപുരം കൊട്ടാരത്തിലെ ഉപ്പിരിക്കമാളികയിൽ സുപ്രധാന ചടങ്ങായ ഉടവാൾ കൈമാറ്റം നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രന് ആചാരപ്രകാരം ഉടവാൾ കൈമാറി കൊട്ടാര മുറ്റത്ത് നടന്ന പൂജാ ചടങ്ങിൽ കേന്ദ്ര മന്ത്രി പൊൻ രാധാകൃഷ്ണൻ എം വിൻസെന്റ് എം